പുരസ്കാരം പ്രധ്യാനമന്ത്രി നരേന്ദ്ര മോദിക്ക് ആദരിക്കപ്പെട്ടതിൽ ിയു

കൃാപിറ്റൽസ് സൺ റൈസേഴ്സ് ഹൈദ്രാബാദിനെ നേരിടും

നാളെ മുതലാണ് സൂക്ഷ്മപരിശോധന

കേരളത്തിനു പുറമ്പെട് ഗു്ജറാത്ത് ഗോവ ദാദ്രാനഗർ ഹവേലി ദാമൻ ദിയു എന്നിവിടുങ്ങ്ളിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും വോട്ടെട്ടിപ്പ് നടക്കും

മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകൻ നകുൽനാഥ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അരുൺ യാദവ് രാജ്യസഭാ എം

എന്നിവർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കമൽനാഥ് പാർട്ടി സ്ഥാനാർത്ഥിയായി ഛിന്ദ് വാര നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും

തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അദ്ദേഹം വയനാട്ടിൽ റോഡ് ഷോ നടത്തി

യുടെ അജിത് സിംഗ് ബി ജെ

വ്യക്തമാക്കിയില്ലെന്നും വൌച്ചറുകൾ കൃത്യമല്ലായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് ചെലവ് നിർീക്ഷ്കൻ ഒ

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബിജ്നൌറിലും ബുലന്ദ്ഷഹറിലും തെരഞ്ഞെടുപ്പ് സമ്മേളനം അഭിസംബോധന ചെയ്തു വയനാട്ടിൽ നിന്ന് മത്സരിക്കാനുള്ള കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അമേഠിയിലെ ജനങ്ങൾക്ക് അപമാനകരമാണെന്ന് ബി ജെ

അമേഠിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ

നിഷാദ് പാർട്ടി നേതാവ് ഗോരഖ്പൂർ ്റ്റീം പിയുമായ പ്രവീൺ നിഷാദ് ബി ജെ

രാജസ്ഥാനിൽ രാഷ്ട്രീയി ലോക് താന്ത്രിക് പാർട്ടിയുമായി സഖ്യം ചേരുമെന്ന് ബി ജെ

രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി നേതാവും എം

യുമായ ഹനുമാൻ ബെനിവാൾ നഗൌരിൽനിന്നും ആർ

യും മത്സരിക്കുമെന്ന് മുതിർന്ന ബി ജെ

നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ജയ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

ഇയുടെ പരമോന്നത ബഹുമതിയായ സെയദ് മെഡൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്

രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധും ഇത്രയധികം ശക്തമായ കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ലെന്നും ് ഈ ബന്ധത്തിന്റെ അടയാളമാണ് യു എ

ഇരു രാജ്യങ്ങളും തമ്മിൽ സമഗ്രവും തന്ത്രപ്രധാനവുമായ ഉഭയകക്ഷി ബന്ധം വളർത്തിയെടുക്കുന്നതിൽ നിർണ്ണായകമായ പങ്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഹിച്ചതെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു വിവിധ മേഖലകളിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സുഹൃദ്ബന്ധം ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി സ്വീകരിച്ച പരിശ്രമങ്ങളെ പ്രശംസിക്കുന്നതായി യു എ

എ

ന്യൂസ് ഡസ്ക് ആകാശവാണി

കുതോടെ ഭവന വാഹന വായ്പാ നിരക്കിൽ കുറവ് വരും

സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടാണ് പലിശ നിരക്കിൽ കുറവ് വരുത്തിയത്

രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്

സംഭവത്തെ കുറിച്ച് വിലയിരുത്താനും വീരമൃത്യു വരിച്ച ബിഎസ്എഫ് ജവാന്മാരുടെ കുടുംബത്തിനു വേണ്ട സഹായം നല്കാനും ബിഎസ്എഫിന്റെ ഡയറക്ടർ ജനറൽ ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ടെന്നും ശ്രീ സിംഗ് ട്വിറ്ററിൽ കുറിച്ചു

പാകിസ്ഥാനിലെ കർത്താപൂർ സാഹിബ് ഗുരുദാര സന്ദർശകർക്ക് കർത്താപൂർ ഇടനാഴി ഉപയോഗിക്കാൻ സാഹചര്യം ഒരുക്കുക എന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു കർത്താപൂർ ഇടനാഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുളള സമിതിയിൽ ചില വിവാദ വ്യക്തികളെ പാകിസ്ഥാൻ ഉൾപ്പെടുത്തിയത് സ്ട്രബന്ധിച്ച ഇന്ത്യയുടെ ആശങ്കകൾ ഈ വിഷയത്തിൽ പാകിസ്ഥാനുമായുള്ളൂ ച്ർച്ചകൾ മാറ്റിവയ്ക്കാനുള്ള കാരണം ഇതാണെന്നും ശ്രീ രവീഷ്കുമാർ കൂട്ടിച്ചേർത്തു

ന്യൂഡൽഹിയിൽ ചേംബർ ഓഫ് ഇൻഡ്യൻ ഇൻഡസ്ട്രിയുടെ വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷക്കാലയളവിൽ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഗണ്യമായ അഭിവൃദ്ധി കണ്ടതായി അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ സാമൂഹികവുംും സാമ്പത്തികവുമായ സ്വഭാവത്തിൽ മെച്ചപ്പെട്ട മാറ്റം വന്നതായും ജെയ്റ്റ്ലി പറഞ്ഞു

ഇയെ പ്രശംസിക്കുന്നതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു

മാധ്യമങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ

എ ഗവണ്മെന്റിന്റെ പരിശ്രമങ്ങളുടെ ഫലമാണ് ഇന്ത്യ യു എ ഇ തന്ത്രപ്രധാന ബന്ധത്തിന്റെ വളർച്ചയെന്നും അദ്ദേഹൃം പറഞ്ഞു ഇന്ത്യക്കു പുറത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യാക്കാരുള്ള് പ്രദേശവും യു

ഇ ആണെന്നും ശ്രീ

പ്രകടനപത്രികയിലെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇൻഡ്യൻ മാധ്യമങ്ങളുടെ ബഹുസ്വരതയേയും മാന്യമ സ്വാതന്ത്ര്യത്തേയും നിയന്ത്രിക്കുന്ന തരത്തിലുള്ളതാണെന്നും ഇത് കാലഹരണപ്പെട്ടതാണെന്നും ശ്രീ

കൂടാതെ സ്വതന്ത്ര ഇന്റർനെറ്റ് ഉപയോഗം സ്വച്ഛേയാ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നതും പ്രകടനപത്രികയിലെ വാഗ്ദാനങ്ങളിൽ അധികാരങ്ങൾ പറയുന്നു എന്നാൽ ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെയും അടിയന്തിര ഘട്ടങ്ങളിലും നടത്തുന്ന പ്രവർത്തനങ്ങളാണെന്നും ശ്രീ ജെയ്റ്റ്ലി കുറ്റപ്പെടുത്തി

ഡൽഹി ഫിറോസ്ഷാ കോട്ട്ല ഗ്രൌണ്ടിൽ രാത്രി എട്ടിനാണ് മത്സരം ഇരു ടീമുകൾക്കും നാല് പോയിന്റുകൾ വീതമാണുള്ളത്

ടൂർണമെന്റിൽ അവശേഷിക്കുന്ന ഏക ഇന്ത്യൻ താരം കൂടിയാണ് ശ്രീകാന്ത്

അഗസ്റ്റാ വെസ്റ്റ്ലാൻഡ് കേസിലെ ഇടനിലക്കാരനാണ് ക്രിസ്റ്യൻ മിഷേൽ കുറ്റപത്രം ശനിയാഴ്ച പരിഗണിക്കുമെന്ന് പ്രത്യേക ജഡ്ജി അരുൺ കുമാർ അറിയിച്ചു

ന്യൂഡൽഹിയിൽ നടന്ന സാമ്പത്തിക്ട് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹൃത്യൂട്ട് സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ട് കൈമാറ്റം പ്രകടനത്തിന്റെ ആടിസ്ഥാനത്തിലാക്കണമെന്നും ശ്രീ സിംഗ് പറഞ്ഞു

ലേബർ പാർട്ടി നേതാവ് വെറ്റ് കൂപ്പറാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്